റഫേൽ ഇടപാട് വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം ട്രാൻസ് ജെൻഡർ ബിൽ ലോക്സഭ പാസ്സാക്കി

പ്രധാനമന്ത്രി നരേന്ദ്ര മോദി നാളെ മുംബൈയിൽ രണ്ട് സുപ്രധാന മെട്രോ ഇടനാഴികൾക്ക് തറക്കല്ലിടും

സജ്ജൻകുമാറിനെ കുറ്റവിമുക്തനാക്കിയ വിചാരണ കോടതിയുടെ കണ്ടെത്തൽ ഹൈക്കോടതി റദ്ദാക്കി ഗൂഢാലോചന ശത്രുത വർദ്ധിപ്പിക്കുകസാമുദായിക ഐക്യം തകർക്കാൻ ശ്രമിക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ് സജ്ജൻകുമാറിനെതിരെയുള്ളത് സി ബി ഐയും കലാപത്തിലെ ഇരകളും സമർപ്പിച്ച അപ്പീലിലാണ് നടപടി

ഡൽഹി കന്റോൺമെന്റിലെ രാജ്നഗർ മേഖലയിൽ ഒരു കുടുംബത്തിലെ അഞ്ച് പേർ കൊല്ലപ്പെട്ട കേസിലാണ് വിധി

മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്നാണ് സിഖ് വംശജർക്കെതിരെ വ്യാപക അക്രമമുണ്ടായത്

റായ്പൂരിലെ സയൻസ് കോളേജ് മൈതാനിയിലാണ് അല്പം മുൻപ് ചടങ്ങ് ിന്റടന്നത് രാജസ്ഥാൻ മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് അശോക് ഗഹ്ലോട്ട് ജയ്പ്പൂരിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു

മുന്തിസഭാംഗമായി സച്ചിൻ പൈലറ്റും മുഖ്യമന്ത്രിയോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്

സി സി

ഭോപ്പാലിലെ ജാംബോരി മൈതാനത്ത് ഗവർണർ ആനന്ദിബെൻ പട്ടേലാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി മുൻപ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് വിവിധ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പതിനഞ്ചു വർഷത്തിനുശേഷമാണ് മധ്യപ്രദേശിൽ കോൺഗ്രസ് മന്ത്രിസഭ രൂപീകരിക്കുന്നത്

പിനാലു സ്വതന്ത്രർ എന്നിവരുടെ പിന്തുണയും കോൺഗ്രസിനുണ്ട്

ലോക്സഭയും രാജ്യസഭയും പ്രതിപക്ഷ ബഹളത്തിൽ മുങ്ങി റഫേൽ ഇടപാടും കാവേരി വിഷയവുമാണ് പ്രധാനമായും ബഹളത്തിന് വിഷയമായത് തുടർന്ന് ഇരുസഭകളും നേരത്തെ പിരിഞ്ഞു

റഫേൽ ഇടപാടിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ലോക്സഭയിൽ കോൺഗ്രസ് അംഗങ്ങൾ ബഹളം വെച്ചത് ഗവൺമെന്റ് സുപ്രീംകോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതായും കോൺഗ്രസ് അംഗങ്ങൾ ആരോപിച്ചു

ബഹളം നിയന്ത്രിക്കാൻ കഴിയാതെയായതിനെ തുടർന്ന് സഭ പിരിയുന്നതായി സ്പീക്കർ സുമിത്ര മഹാജൻ അറിയിക്കുകയായിരുന്നു രാജ്യസഭയിലും ഇതേ വിഷയങ്ങൾ തന്നെയാണ് വൻ ബഹളത്തിനിടയാക്കിയത് പ്തക്കാർഡുകളും മുദ്രാവാക്യങ്ങളുമായാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങിയത്

ഈ ബഹളത്തിനിടെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദ് റഫേൽ വിഷയം ഉന്നയിക്കുകയായിരുന്നു എന്നാൽ കോടതി വിഷയം പരിഗണിക്കുന്നു എന്നതിനാൽ ചർച്ച ചെയ്യാനാവില്ലെന്ന നിലപാടാണ് അധ്യക്ഷൻ സ്വീകരിച്ചത് അതേസമയം കോൺഗ്രസ് ഈ വിഷയത്തിൽ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ട്രഷറി ബെഞ്ചിൽ നിന്നും ആവശ്യമുയർന്നു കോടതി തള്ളിയ വിഷയത്തെയാണ് കോൺഗ്രസ് തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് ഇവർ ആരോപിച്ചു

റഫേൽ വിമാന ഇടപാടിൽ സുപ്രീംക്കോട്ടിയേയും പാർലമെന്റിനേയും തെറ്റിദ്ധരിപ്പിച്ചു എന്നാരോപിച്ചാണ് കോൺഗ്രസ് എം

സുനിൽ ്ജീക്കർ നോട്ടീസ് നൽകിയത് അതേസമയം രാജ്യസഭയിൽപ്രപ്തിപക്ഷ നേതാവ് ഗുലാം നബി ആസാദ് നിയമമന്ത്രി ർപ്പിശ്കർ പ്രസാദിനെതിരെയും അവകാശലംഘനത്തിന് നോട്ടീസ് നൽകി നിയമമന്ത്രാലയമാണ് തെറ്റായ വിവരങ്ങൾ കോടതിയിൽ സമർപ്പിക്കാൻ അനുവാദം നൽകിയതെന്ന് ഗുലാം നബി ആസാദ് പാർലമെന്റിന് പുറത്ത് വാർത്താലേഖകരോട് പറഞ്ഞു റഫേൽ ഇടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികളെല്ലാം കഴിഞ്ഞയാഴ്ച സുപ്രീംകോടതി തള്ളിയിരുന്നു ഇടപാട് സംബന്ധിച്ച് പരിശോധന നടത്തിയെന്ന സി

റിപ്പോർട്ടിനെ പി

ചെയർമാനും കോൺഗ്രസ് നേതാവുമായ മല്ലികാർജ്ജുൻ ഖാർഗെ നിരസിച്ചിരുന്നു

എ ജി പരിശോധിച്ചു എന്നത് തെറ്റിദ്ധരിച്ചതാണെന്ന് ഗവൺമെന്റ് കോടതിയിൽ സമർപ്പിച്ച തിരുത്തൽ ഹർജിയിൽ പറയുന്നു

കോൺഗ്രസ് പ്രസിഡന്റ് രാഹൂൽ ഗാന്ധിയ്ക്കെതിരെ ബി ജെ

ലോക്സഭയിൽ അവകാശലംഘനത്തിന് നോട്ടീസ് നൽകി രാഹുൽ ഗാന്ധി തെറ്റായ വിവരങ്ങൾ പറഞ്ഞ് സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നാരോപിച്ചാണ് പാർട്ടി എം

അനുരാഗ് താക്കൂർ നോട്ടീസ് നൽകിയത്

മുംബൈയിലെ ദാദറിൽ ബി ജെ പി സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ പ്രധാനമന്ത്രി സ്വമേധയ വില നിശ്ചയിച്ച് കരാറിൽ ഏർപ്പെടുകയല്ലായിരുന്നു എന്നും അവർ വൃക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അഴിമതി രഹിത ഗവണമെന്റ് പ്രവർത്തിക്കുന്നത് അംഗീകരിക്കാൻ കോൺഗ്രസിനാകുന്നില്ല റഫേൽ ഇടപാടിൽ നിരവധി വിവാദം നടക്കുന്നതിനാൽ യഥാർത്ഥ വില അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നും സി

ജിയുടെയും പി

സിയുടെയും പരിശോധനകൾക്ക് ശേഷം വില ജനങ്ങളെ അറിയിക്കുമെന്നു അവർ കൂട്ടിച്ചേർത്തു

മാല ദ്വീപ് പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹുമായി ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സഹായ വാഗ്ദാനം നൽകിയത്

തീരമേഖലയിലെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കൂടുതൽ സുരക്ഷാ സൈനികരെ നിയോഗിക്കാനും സംയുക്ത പട്രോളിംഗ് നടത്താനും ഇരുരാജ്യങ്ങളും തീരുമാനിച്ചു ആഗോള രംഗത്തെ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടാൻ പരസ്പരം സഹായിക്കാനും ഇരുരാജൃങ്ങളും ധാരണയിലെത്തി ഇതനുസരിച്ച് ഐക്യരാഷ്ട്രയിൽ ഇന്ത്യയുടെ സ്ഥിരാംഗത്വത്തിനും സെക്യൂരിറ്റി കൌൺസിൽ അംഗത്വത്തിനും മാലദ്വീപ് പിന്തുണ നൽകും

മുംബൈയിൽ രണ്ട് സുപ്രധാന മെട്രോ ഇടനാഴികൾക്ക് അദ്ദേഹം തറക്കല്ലിടും താനെയിൽ നിന്നും ഭിവണ്ടി വഴി കല്യാണിലേക്കും ദഹിസറിൽ നിന്നും മിറാവഴി ഭയാന്ദറിലേക്കുമുള്ള മെട്രോ ഇടനാഴികളുടെ നിർമ്മാണത്തിനാണ് നാളെ തുടക്കം കുറിക്കുന്നത് കൂടാതെ പൂനെ മെട്രോയുടെ മൂന്നാംഘട്ട വികസനത്തിന് അദ്ദേഹം തുടക്കം കുറിക്കും

ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് കൂടുതൽ കരുത്ത് പകരാൻ ഈ ദൌത്യത്തിനാകും ഇന്ത്യൻ വ്യോമസേനയുടെ പ്രവർത്തനങ്ങളെയാകും ഈ ഉപഗ്രഹം കൂടുതൽ സഹായിക്കുക

ആർ ഒയുടെ ഈ വർഷത്തെ എട്ടാമത്തെയും അവസാനത്തെയും വിക്ഷേപണമാണിത്

സംസ്ഥാന സഹകരണ ബാങ്കിന്റെ ആധുനിക ബാങ്കിംഗ് സേവനങ്ങൾ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സഹകരണ മേഖലയെ ആധുനികമാക്കി മുന്നോട്ടു കൊണ്ടുപോവുകയാണ് കേരള ബാങ്ക്ട്രീലൂടെ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം അഭീപ്പ്രായ്പ്പെട്ടു

സംസ്ഥാനത്തെ തീരദേശ ജില്ലകളിൽ കനത്ത മഴ ലഭിച്ചു സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി സ്കൂളുകൾക്കും കോളേജുകൾക്കും ഇന്ന് അവധിയായിരുന്നു ആന്ധ്രാപ്രദേശ് ആഭ്യന്തരമന്ത്രി എൻ ചിന്നരാജപ്പ സ്ഥിതിഗതികൾ നേരിട്ട് നിരീക്ഷിക്കുകയാണ് കിഴക്കൻ ഗോദാവരി ഗുണ്ടൂർ കൃഷ്ണ വിസിയനഗരം വിശാഖപട്ടണം വിജയവാഡ എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റും മഴയും അനുഭവപ്പെട്ടു

വിശാഖപട്ടണത്തേക്കുള്ള വ്യോമഗതാഗതവും തടസ്സപ്പെട്ടു